വോട്ടെടുപ്പിൽ കനത്ത പോളിംഗ്

ബുംഗാളിൽ പലയിടത്തും അക്രമഠ

നില ഗൂരുതരം ജാർഖണ്ഡ് സ്വദേശിയായ മാതാവിനെ അറസ്റ്റ് ചെയ്തു ഐ

പോരാട്ടം മത്സരം രാത്രി എട്ടിന്

ബംഗാളിൽ പലയിടത്തും അക്രമണങ്ങളും റിപ്പോർട്ട് ചെയ്തു കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി ശ്രീ വിജയ ഇലക്ഷൻ വോയിസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം പൂർത്തിയാകുമ്പോൾ ഭേദപ്പെട്ട പോളിംഗ് മിക്ക മണ്ഡലങ്ങളിലും പോളിംഗ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട് തമിഴ്നാട്ടിലെ മധുരയിൽ കല്ലഴകർ ഉത്സവം നടക്കുന്നതിനാൽ രാത്രി എട്ട് മീണി വരെയാണ് വോട്ടെടുപ്പ്

ഇവിടെ സി പി ഐഎം സ്ഥാനാർത്ഥിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ മുഹമ്മദ് സലിമിന്റെ വാഹനവ്യൂഹത്തിന് നേരെ വെടിവെയ്പ്പുണ്ടായി തൃണമൂൽ ബി ജെ പി അംഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായതായും റിപ്പോർട്ടുണ്ട് ഫത്തേപ്പൂർ സിക്രിയിലെ മംഗോളികാലാ ഗ്രാമവാസികൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു

എന്നാൽ അനധികൃതമായി പണം കണ്ടെത്തിയതിനെ തുടർന്ന് തമിഴ്നാട് വെല്ലൂരിൽ ഇന്ന് നടക്കാനിരുന്ന വോട്ടെടുപ്പ് റദ്ദാക്കുകയായിരുന്നു ത്രിപൂര ഈസ്റ്റ് മണ്ഡലത്തിലെ വോട്ടെടുപ്പ് മൂന്നാം ഘട്ടത്തിലേക്ക് മാറ്റി

ഇതോടെ സംസ്ഥാനത്ത് പ്രചാരണം കൂടുതൽ ഊർജ്ജിതമായി കൂടുതൽ വിവരങ്ങളുമായി സുലൈമാൻ

ഡി

തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ എൻ

എ സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനായി സംഘടിപ്പിക്കുന്ന സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും

രണ്ടാം തവണയാണ് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണ്ട്ത്തിനായി കേരളത്തിലെത്തുന്നത്

ഡി എഫ് പ്രചരണ്ങ്ങൾക്ക് സി

എം

മലപ്പുറത്തെ എടപ്പാളിലും കുറ്റിപ്പുറത്തും നടക്കുന്ന റാലികളിൽ അദ്ദേഹം പങ്കടുക്കും പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പാലക്കാട് ജില്ലയിലെ ത്രിത്താല മണ്ഡലത്തിലെ കുമ്പിടിയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കണ്ണൂർ ജില്ലയിലെ പാനൂരിൽ വടകര മണ്ഡലം എൽ ഡി

ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു പക്ഷത്തിന് റോളില്ലെന്നും ഇടുതപക്ഷം വെറും കാഴ്ചക്കാർ മാത്രമെന്നും കോൺഗ്രസ്സ് പ്രവർത്തക സമിതിഅംഗം ശ്രീ എ

പിണറായി ഗവൺമെന്റിന്റെ മർക്കട മുഷ്ടി തിരുത്താനുള്ള അവസരമാണിത് കേരളം യു ഡി

പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നാളെ തിരുവനന്തപുരത്ത് യു ഡി

കോൺഗ്രസ്സ് പ്രവർത്തകസമിത്തി അംഗ്ം ഗുലാംനബി ആസാദ് നാളെ കണ്ണൂർ മട്ടുന്നൂരിൽ പ്രചരണ യോഗത്തിൽ പങ്കെടുക്കും

ആന്ധ്രയിൽ നിന്ന് പ്രത്യേക വിമാനത്തിലാണ് അദ്ദേഹം തിരുവനന്തപുരത്തെത്തുന്നത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനായി സംഘടിപ്പിക്കുന്ന സമ്മേളനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും രാത്രി തന്നെ അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങും രണ്ടാം തവണയാണ് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കേരളത്തിലെത്തുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച അദ്ദേഹം കോഴിക്കോട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയിരുന്നു

കനത്ത സുരക്ഷാക്രമീകരണമാണ് തലസ്ഥാനത്ത് പോലീസ് സജ്ജമാക്കിയിരിക്കുന്നത്

നോട്ടുനിരോധനം നടപ്പാക്കി ഭാരത ജനതയെ വഞ്ചിച്ച മോദിക്കുള്ള മറുപടിയായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്നും ശ്രീ മുല്ലപ്പള്ളി പറഞ്ഞു

ആറ്റിങ്ങലിൽ പ്രസംഗിക്കവെയാണ് ശ്രീധരൻപിള്ള വിവാദ പരാമർശം നടത്തിയതെന്ന് പരാതിയിൽ പറയുന്നു ശ്രീധരൻപിള്ളയുടെ പ്രസംഗത്തിൽ ച്ചട്ട്ലംഘനമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസൂർ ്റിപ്പോർട്ട് നൽകിയിരുന്നു

കണ്ണൂർ കലക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ വെബ്കാസ്റ്റിംഗ് കൺട്രോൾ റൂം സജ്ജീകരിക്കും ചൌക്കിദാർ ചോർഹെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ ചൌക്കിദാർ ചോർഹെ എന്ന പരസ്യ ചിത്രത്തിന്റെ പ്രദർശനം മധ്യപ്രദേശിൽ നിരോധിച്ചു പ്രധാനമന്ത്രിയെ വ്യക്തിപരമായി അപകീർത്തിപ്പെടുത്തുന്നു എന്ന പരാതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി മധ്യപ്രദേശിലെ ബി ജെ പി സംസ്ഥാന നേതൃത്വമാണ് പരാതി സമർപ്പിച്ചത്

ഇടിമിന്നൽ സമയത്ത് ടെറസിലോ മുറ്റത്തോ ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്നും തുറസ്സായ സ്ഥലത്ത് കളിക്കുന്നതിൽ നിന്ന് കുട്ടികളെ തടയണമെന്നും അറിയിപ്പിലുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് പ്രസംഗവേദികളിൽ ഇടിമിന്നൽ ഉള്ള സമയം നിന്നുകൊണ്ടുള്ള പ്രസംഗം ഒഴിവാക്കുക മൈക്ക് ഉപയോഗിക്കാതിരിക്കുക തുടങ്ങിയ മുന്നറിയിപ്പുകളും ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നു അടുത്ത രണ്ട് ദിവസങ്ങളിൽ കേരളത്തിൽ പരക്കെ കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിക്കുന്നു നാളെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മലപ്പുറത്ത് യെല്ലോ അലെർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്

കുട്ടിയെ മർദ്ദിച്ചത് താനാണെന്ന് ചോദ്യം ചെയ്യലിൽ അമ്മു സമ്മതിച്ചതോടെയാണ് പോലീസ് ആറ്റസ്റ്റ് രേഖപ്പെടുത്തിയത്

തലയ്ക്ക് അതീവ ഗുരുത്രമായി പരിക്കേറ്റ കുട്ടി ആലുവയിലെ സ്വകാർട്ട് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് കുട്ടി അപകടനില തരണം ചെയ്തിട്ടില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത് കുട്ടിയുടെ ചികിത്സയും സുരക്ഷിതത്വവും സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കും ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലെ പ്രത്യേക വിദഗ്ദ്ധ സംഘത്തെ ഗവൺമെന്റ് നിയോഗിച്ചു

ശൈലജ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി കെ

കുട്ടികൾക്ക് നേരെയുള്ള എല്ലാവിധ അതിക്രമങ്ങളും തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ തണൽ പദ്ധതി ആവിഷ്കരിച്ചത്

ബന്ധുക്കളും അയൽവീട്ടുകാരും ഇത് ശ്രദ്ധിക്കണമെന്നും ഈ നമ്പറിലെ സേവനം പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു

കുഞ്ഞിന്റെ ഹൃദയ വാൽവുകളിലെ തകരാർ പരിഹരിച്ചതായി ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു

ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർഥനകളും തിരുവത്താഴ കർമ്മങ്ങളും കാൽകഴുകൽ ശുശ്രൂഷയും നടന്നു പ്രധാന തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂരിൽ മലകയാറാൻ തീർത്ഥാടകരുടെ വൻതിരക്കാണ് അനുഭവപ്പെടുന്നത്

പീഡാനുഭവ സ്മരണ പുതുക്കി നാളെ ദുഃഖവെള്ളി ആചരിക്കും

ക്രിസ്തുവിന്റെ പീഡാനുഭൂപ്പും കുരിശുമരണവും ഉയർത്തെഴുന്നേൽപ്പൂർ അനുസ്മരിക്കുന്ന വിശുദ്ധ വാരാചരണത്തിന് ഞാ്യറാഴ്ച ഈസ്റ്ററോടെ സമാപനമാകും

പെരിയാർ വനൃജീവി സങ്കേതത്തിനുള്ളിലെ ക്ഷേത്രത്തിൽ ഉൽസവദിനത്തിൽ മാത്രമാണ് ഭക്തർക്കു പ്രവേശനം ഇടുക്കി തേനി ജില്ലാ ഭരണകൂടങ്ങൾ സംയുക്തമായാണ് ഉൽസവം നടത്തുന്നത് ആഘോഷം പരിസ്ഥിതിസൌഹാർദ്ദമായി നടത്തുവാൻ ജില്ലാകലക്ടറുടെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് ഭക്തർക്ക് രാവിലെ ആറ് മുതൽ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണി വരെ മാത്രമാണ് പ്രവേശനം അനുവദിക്കുക

ഇന്നലെ നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിക്ക് ആറുവിക്കറ്റിന് സൺറൈസേഴ്സ് ഐഫദ്രാബാദ് പരാജയപ്പെടുത്തിയിരുന്നു

പോയിന്റ് നിലയിൽ ചെന്നൈ സൂപ്പർ കിങ്സാണ് മുന്നിൽ